സാമ്പത്തിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ച തുടരുന്നു

പേരിൽ വ്യോമസേനയിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ സി

സാമ്പത്തിക വളർച്ചുയും തൊഴിൽ സ്കൃഷ്ടിയും ഉറപ്പു വരുത്തുന്ന സാമ്പത്തിക നയത്തിലൂന്നിയായിരിക്കു്ട് ചർച്ചകൾ കേന്ദ്രമന്ത്രിമാരായ പിയൂഷ്ഗോയൽ റാവു ഇന്ദ്രജിത് സിംഗ് എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ബജറ്റിൽ വരുത്തേണ്ട അവസാന പരിഷ്ക്കരണങ്ങളും ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടേക്കാം കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

രാജ്യത്തിന്റെ വളർച്ചയിലെ മന്ദതയും തൊഴിലില്ലായ്മയും മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് പ്രധാനമായും ചർച്ചു ചെയ്യപ്പെടുക നീതി ആയോഗുമായുള്ള ചർച്ച നേരത്തെ പ്രധാനമന്ത്രി നടത്തിയിരുന്നു

ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സഹമന്ത്രി അനുരാഗ് താക്കൂർ എന്നിവർ സന്നിഹിതരായിരുന്നൂ ധനകാര്യ സെക്രട്ടറി ചന്ദ്രാ ഗാർഗ് റവന്യൂ സെക്രട്ടറി ആജ്യ്ക് ഭൂഷൺ പാണ്ഡേ വകുപ്പിലെ മറ്റ് സെക്രട്ടറിമാരായു ഗ്നിരിഷ് ചന്ദ്ര മുർമു രാജീവ് കുമാർ അതനു ചക്രബർത്തിച്ചു ് തുടങ്ങിയവരും മുതിർന്ന ഉദ്യോഗസ്ഥരും ന്യൂഡൽക്റിയിലെ നോർത്ത് ബ്ലോക്കിൽ നടന്ന ചടങ്ങിൽ സന്നിഹിത്തുരായിരുന്നു ബജറ്റ് തയ്യാറാക്കുന്നതിൽ സഹായിച്ച ധനകാര്യ്പ്പകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതുവരെ പ്രസ്സിലായിരിക്കും ഉണ്ടാവുകയെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു ജുലൈ അഞ്ചിന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും ന്യൂസ് ഡസ്ക് ആകാശവാണി

പാകിസ്ഥാന്റെ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദത്തിനും അതിനുള്ള സാമ്പത്തിക സഹായത്തിനും തടയിടാൻ സുതാര്യതയും സ്ഥിരതയുള്ളതുമായ നടപടികളെടുത്താലേ ലോക രാജ്യങ്ങൾക്കുള്ള ആശങ്കയ്ക്ക് പരിഹാരമാകൂ ഒക്ടോബർ മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നിർദേശങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പും നല്കിയിട്ടുണ്ട്

ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജയ് ഭണ്ഡാരിയുടെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടത്തി വിമാനം ലഭ്യമാക്കിയ സ്വിറ്റ്സർലണ്ട് കമ്പനിയായ പിലാറ്റസ്നെയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട്

ഇന്ത്യൻ വ്യോമ നിയന്ത്രണ ഡയറക്ടറേറ്റ് ജനറലിന്റേതാണ് തീരുമാനം

മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനും

ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിഗ് ഡാറ്റാ അനലിറ്റിക്സ് ബ്ലോക്ചെയർ ടെക്നോളജി എന്നിവയും ശുപാർശയിൽ ഉൾപ്പെടുന്നു

ഒട്ടേറെ വിത്ത് വികസന പദ്ധതികളും പരിപാടികളും സംസ്ഥാനങ്ങൾ വഴി കേന്ദ്ര ഗവണ്മെന്റ് നടപ്പിലാക്കി വരികയാണെന്ന് കേന്ദ്ര കാർഷിക മ്ന്ത്രാലയം അറിയിച്ചു

കൈവശം വച്ചിട്ടുള്ള ഭൂമിയുടെ അളവ് നോക്കാതെ രാജ്യത്തെ എല്ലാ കർഷകർക്കും ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഗവണ്മെന്റിന്റെ തീരുമാനം

ഇന്ന് രാവിലെ തുടങ്ങിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്

അതേസമയംപുൽവാമയിലെ ദ്രബ്ഗാം മോംഗൽ ഗ്രാമങ്ങളിലും സൈന്യം വ്യാപകമായ തെരിച്ചിൽ നടത്തുകയാണ്

എഫ് രാഷ്ട്രീയ് റൈഫിൾസ് ജമ്മുകാശ്മീർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവർ സംയുക്തമായി നടത്തുന്ന തെരച്ചിലും തുടരുന്നുണ്ട് നാട്ടുകാരുടെ വീടുകളിൽ ഭീകരർ ഒളിച്ചിരിക്കുകയാണെന്ന് സൈന്യത്തിന് ലഭിച്ച വിവരം പുൽവാമ ഭീകരാക്രമണത്തിനുശേഷം മേഖലയിൽ സൈന്യം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്

ആകാശ യാത്രയിൽ വിമാനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ മികവ് ലോകം അംഗീകരിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു

പൊതുജനതാല്പര്യവും സുരക്ഷയും മുൻനിർത്തിയാണ് അടിയന്തരാവസ്ഥ നീട്ടുതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അറിയിച്ചു

ദശലക്ഷക്കണക്കിന് ആളുകളിൽ നേരിട്ടെത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡി

ശ്രീനഗറിൽ സൌജന്യ ഡി ഡി

പദ്ധതിപ്രകാരം രാജ്യമെമ്പാടും സെറ്റ്ടോപ് ബോക്സുകൾ സൌജന്യമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു

ദോഗ്രി ഭാഷയിൽ ആരംഭിച്ച വാർത്താ പ്രക്ഷേപണത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി ഡോ

ദോഗ്രി ഭാഷയിൽ വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചതിനും സൌജന്യ സെറ്റ്ടോപ് ബോക്സ് വിതരണത്തിനും വാർത്താവിതരണ മന്ത്രാലയത്തോട് അദ്ദേഹം നന്ദി പറഞ്ഞു

കൂടുതൽ ആളുകളിൽ യോഗ എത്തിച്ച് ലോകത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കാൻ പ്രയത്നിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു മികച്ച സംഭാവനയ്ക്ക് സ്ഥാപനങ്ങൾക്കു നല്കുന്ന അവാർഡുകൾക്ക് ജപ്പാൻ യോഗാ നികേതനും ബീഹാർ സ്കൂൾ ഓഫ് യോഗയും അർഹരായി വ്യക്തിഗത സംഭാവനയ്ക്ക് ഇറ്റലിസ്വദേശി അന്റോണിയേറ്റാ റോസിയും ഗുജറാത്തിൽ നിന്നുള്ള സ്വാമി രാജർഷി മുനി എന്നിവർക്കും അവാർഡ് ലഭിച്ചു സ്പാനിഷ് ഫ്രഞ്ച് അറബിക് റഷ്യൻ ജാപ്പനീസ് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള അനുമോദന സന്ദേശവും പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തു

ബി ബി എസ് സീറ്റുകൾ കൂടി ലഭ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ

മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വർക്കാണ് ഈ സീറ്റുകളിലേക്ക് പ്രവേശനം നൽകുന്നത്

എസ്

രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ന്യൂസ് ലാന്റിനെ ബാറ്റിംഗിന് അയച്ചു